പ്രചരണങ്ങൾ അവസാനഘട്ടത്തിലേയ്ക്ക് പ്രചരണം ശക്തമാക്കി മൂന്ന് മുന്നണികളുടേയും നേതാക്കൾ

ആരോപണങ്ങളുമായി പ്രതിപക്ഷ്ടു പ്രതിരോധിച്ച് മുഖ്യമന്ത്രി നിയമസഭാ തിരഞ്ഞെട്ടൂപ്പ് സു്ഗമമായി നടത്തുന്നതിനുള്ള ന് സുരക്ഷാക്രമീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ

ഈസ്റ്റർ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന

അസമിൽ വീണ്ടും എൻഡിഎ സർക്കാർ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അസമിലെ തമുൽപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുകയും സംവദിക്കുകയും ചെയ്തതിന്റെ ആത്മവിശ്വാസം തനിക്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

എട്ട് എ ഘട്ടങ്ങളിലായി തെരൂഞ്ഞ്ടുപ്പ് നടത്തുന്ന പശ്ചിമ ബംഗാളിൽ മൂന്നാംഘട്ടത്തിലേയ്ക്കുള്ളം വോട്ടെടുപ്പും ഈ മാസം ആറിന് നടക്കും അതേ സമയും ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം തമിഴ്നാട്ട് പ്രുതുച്ചേരി എന്നിവിടങ്ങളിൽ പരസ്യ പ്രചാരണം അവസാന ദിനത്തില്ലേയ്ക്ക് അടുക്കുകയാണ്

റോഡ് ഷോയിൽ അഞ്ചുവാഹനങ്ങൾക്കു മാത്രമേ ഒരു നിരയിൽ പങ്കെടുക്കാനാവൂ അര മണിക്കൂറിന്റെ ഇടവേളയിൽ മാത്രമേ അടുത്ത പ്രചരണ ജാഥ അനുവദിക്കാവൂ എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദേശത്തിൽ പറയുന്നു

സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാമേഖലകളാക്കി തിരിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസിനെ വിന്യസിക്കാനാണ് തീരുമാനം നാളെ മുതൽ പുതിയ സുരക്ഷാ സംവിധാനം നിലവിൽ വരും ഒരു റിപ്പോർട്ട്

ലോക്കൽ പോലീസിനു പുറമേ ക്രൈംബ്രാഞ്ച് വിജിലൻസ് റെയിൽവേ പോലീസ് തുടങ്ങിയ വിഭാഗങ്ങളിലേ ഉദ്യോഗസ്ഥരേയും നിയോഗിച്ചിട്ടുണ്ട്

ഈ പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾക്കും പ്ടോളിർഗ് ബൂത്തുകൾക്കും പ്രത്യേക സംരക്ഷണവും ഉറപ്പാക്കിയിട്ടുണ്ട്ട് കൂടാതെ ഏത് അടിയന്തര സാഹചരൃവും നേരിടാനായി സുംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്

അമിത്ഷാ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് കേന്ദ്ര സർക്കാർ കോടികളാണ് നൽകിയത്എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ

പിണറായി സർക്കാർ കേരളത്തിൽ നടത്തിയത് പ്രീണന രാഷ്ട്രീയമാണെന്നുംബിജെപി വികസന രാഷ്ട്രീയം നടപ്പാക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു

കണ്ണൂർ കൂത്തു പറമ്പിൽ എൻ

സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി

ജെ

ഒരിക്കലും അഴിമതിക്ക് കൂട്ടുനിൽക്കില്ലെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കേരളത്തിൽ ഇരുമുന്നണികളും അന്യോന്യം മത്സരിക്കുമ്പോൾ ബംഗാളിൽ ഇവർ ഒന്നിച്ചു നിൽക്കുകയാണെന്നും കേന്ദ്രമന്ത്രി ആരോപിച്ചു സ്ത്രീ സുരക്ഷ യെക്കുറിച്ച് പറയാൻ ഇരു മുന്നണികൾക്കും അവകാശമില്ലെന്നും കേന്ദ്ര മന്ത്രി കൂട്ടിച്ചേർത്തു

പ്രഹ്ളാദ് ജോഷി കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൌനം കുറ്റസമ്മതമായി കരുതാർമുന്ന് കേന്ദ്ര മന്ത്രി പ്രഹ്ളാദ് ജോഷി

മലപ്പുറം വളാഞ്ചേരിയിൽ എൻഡിഎ സ്ഥാനാർഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റോഡ്ഷോ യിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ദേശീയ സംസ്ഥാന നേതാക്കളുടെ വരവ് മുന്നണികളെ ആവേശത്തിൽ എത്തിച്ചിരിക്കുകയാണ് പാട്ടും കഥയും തെരുവ് നാടകവും കൊണ്ട് പ്രചാരണം കൊഴുക്കുമ്പോൾ ഓരോ വോട്ടറെയും നേരിട്ട് കണ്ട് വോട്ടഭ്യർഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർഥികൾ കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി കെ

ശശിധരന്റെ റിപ്പോർട്ട്

എഫ് പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകിയിട്ടുള്ള പ്രകാരം കായൽ മലിനീകരണ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ധനമന്ത്രി ടി

തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ജലഘ്പോഷിയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹ്ട് ഐൽ

എഫ് സ്ഥാനാർത്ഥി ചിത്തരഞ്ജൻ എൽ ഡി എഫ് നേതാക്കളായ ജി വേണുഗോപാൽ കെ

കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ബി ജെ

നേതാക്കൾ കേരളത്തെക്കുറിച്ച് വ്യാജമായ ചിത്രം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്

ഡി എഫിന്റെ സഹായത്തോടെയാണ് ബി ജെ

ക്ക് കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് അക്കൌണ്ട് തുറക്കാനായതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു വർഗ്ഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ച ഇല്ലാത്ത സമീപനമാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു

രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വ്യക്തികളും നൽകുന്ന പരസ്യങ്ങൾക്ക് നിബന്ധന ബാധകമാണ് അനുമതിയില്ലാതെ പ്രസിദ്ധീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായി കണക്കാക്കി നടപടി സ്വീകരിക്കും രാഹുൽ ഗാന്ധി കേരളത്തിൽ ന്യായ് പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാകുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി കോഴിക്കോട് കൊയിലാണ്ടിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ഭാവിക്ക് യു ഡി എഫിന് വ്യക്തമായ പദ്ധതിയുണ്ടെന്നും രാഹുൽഗാന്ധി പ്റഞ്ഞു കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നൂളി സംസ്ഥാനത്തിന്റെ സമ്പദ് വൃവസ്ഥ തകരാറിലാണെന്നും അദ്ദേഹം ആരോപിച്ചു

കെ പ്രേമചന്ദ്രൻ എം

എൽഡിഎഫ് നേതാക്കൾ ഇപ്പോഴും വിശ്വാസികളെ അധിക്ഷേപിക്കുകയാണെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശബരിമലയിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണത്തിന് തയ്യാറാകുന്നില്ലന്നും അദ്ദേഹം ചോദിച്ചു

കേരളത്തിന്റെ സാമ്പത്തിക നില തകർത്തത് ധനമന്ത്രിയുടെ പ്രവർത്തികളാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഇതുവരെ ഉണ്ടായ സർക്കാരുകൾ ആകെ വാങ്ങിയ കടത്തേക്കാൾ കൂടുതലാണ് അഞ്ചുവർഷം കൊണ്ട് ഇടത് സർക്കാർ വരുത്തിവച്ചത് പുതുതായി വൻകിട പദ്ധതികളൊന്നും ആരംഭിച്ചു പൂർത്തിയാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഉല്പാദനം വർദ്ധിപ്പിക്കാനുള്ള യാതൊന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പ്രസ്താവന്യിലൂടെ അറിയിച്ചു

എഫ് സർക്കാരിന്റെയും അതിനു മുൻപുള്ള യു

വികസനങ്ങൾ ്സംബ്ലന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ അവകാശ വാദങ്ങൾ വിലപ്പോവീല്ലെന്നും അദ്ദേഹം പറഞ്ഞു കാരുണ്യ പദ്ധതി ഇൻഷുറൻസ് അധിഷ്ഠിതമാക്കി ് എൽ

ഡി എഫിന്റെതല്ലാതെ മറ്റൊരു വൻകിട പദ്ധതി എൽ ഡി

മുല്ലപ്പള്ളി ജനങ്ങളിൽ നിന്നും അകന്നു പോയ സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലേതെന്ന് കെ

സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ

ഇടത് സർക്കാരിന്റെ അഴിമതികൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് വൃക്തമായ വിശദീകരണം നൽകാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസ്താവനയിലൂടെ ആരോപിച്ചു

കുരിശിലേറ്റപ്പെട്ട യേശുക്രിസ്തു മൂന്നാം ദിനം ഉയർത്ത് എഴുന്നേറ്റതിന്റെ ഓർമ്മ ആചരിക്കാനുള്ള ഒരുക്കത്തിലാണ് കോവിഡ് പശ്ചാത്തലത്തിൽ കർശനമായ ക്രൈസ്തവർ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പള്ളികളിൽ കഴിഞ്ഞ ഒരാഴ്ചയും വിശുദ്ധ വാരാചരണം നടത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യൂ

മനുഷ്യത്തിന്റെ ഒരുമ കൊണ്ട് കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഇൌസ്റ്റർ പ്രചോദനമാകട്ടെയെന്നും മുഖ്യമന്ത്രി ഈസ്റ്റർ ആശംസ സന്ദേശത്തിൽ പറഞ്ഞു

ഇതോടെ അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഗുണനിലവാര അംഗീകാരം നേടുന്ന സംസ്ഥാനമായി കേരളം മാറി

അന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന അസം പശ്ചിമ ബംഗാൾ തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിലെ നടപടികളും ഇതോടൊപ്പം പ്രദർശിപ്പിക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളെ കേന്ദ്രീകരിച്ചാണ് ഓരോ സംസ്ഥാനത്തിൻറെയും അവതരണം കോവിഡ് പ്രതിരോധം ഉറപ്പാക്കുന്നതു സംബന്ധിച്ച വിശദാംശങ്ങൾ കോട്ടയം ജില്ലാ കളക്ടർ അവതരിപ്പിക്കും കോട്ടയം നിയമസഭാ നിയോജക മണ്ഡലത്തിൻറെ പൊതുനിരീക്ഷകൻ പന്ധാരി യാദവും പരിപാടിയും പങ്കെടുക്കും

ജില്ലാ കളക്ടർമാർ കുടുംബശ്രീ ജില്ലാ മിഷനുകൾക്ക് നൽകിയ നിർദേശത്തെ തുടർന്നാണിത്

കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഹരിത ചട്ടവും കോവിഡ് മാനദണ്ഡങ്ങളും കർശനമായി ്പാലിച്ചു കൊണ്ട് ഭക്ഷണ വിതരണം നടത്തിയിരുന്നു